ടി ജലീൽ ശബരിമലയും പരിസര പ്രദേശങ്ങളും പൊലീസ് നിയ ന്ത്രണത്തിൽ മാധ്യമ വിലക്കില്ലെന്ന് സംസ്ഥാന പൊലീസ് മേധാവി ചെക്പോസ്റ്റുകളിൽ അയ്യപ്പ ഭക്തരെ പരിശോധിച്ചാൽ ഭവിഷ്യത്ത് നേരിടേണ്ടി വരുമെന്ന് ബി

പിസംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് ജാതി രാഷ്ട്രീയത്തിലേക്ക് കേരളത്തെ വലിച്ചുകൊണ്ടു പോകാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്ന് കെ

സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ

ചന്ദ്രികയടക്കം പ്രമുഖ പത്രങ്ങ ളിലെല്ലാം പത്രക്കുറിപ്പ് നൽകിയാണ് ജനറൽ മാനേജർ പദവിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചതെന്നും ഏഴ് അപേ ക്ഷകരിൽ ഒരേ ഒരാൾക്ക് മാത്രമായിരുന്നും നിശ്ചിത യോഗൃതയെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഡെപ്യൂട്ടേഷൻ അടിസ്ഥാന ത്തിൽ നിയമനം നടത്താൻ കോർപ്പറേഷന് അധികാര മുണ്ട് ധനകാര്യ കോർപ്പറേഷൻ മുൻകാലത്ത് നൽകിയ വായ്പകളും ധനസഹായങ്ങളും തിരിച്ചുപിടിക്കാൻ നട ത്തിയ ശ്രമമാണ് ആരോപണങ്ങൾക്ക് പിന്നിലെന്ന് മന്ത്രി പറഞ്ഞു പല ലീഗ് നേതാക്കളുടെയും അടുത്തേക്കാണ് വഴിവിട്ട വായ്പകളുടെ പോക്കെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇതേത്തുടർന്നാണ് യൂത്ത് ലീഗ് ഉൾപ്പെടെ സംഘടന കളും നേതാക്കളും ബന്ധുജന നിയമന വിവാദം ഉയർത്തുന്നതെന്ന് ജലീൽ ആരോപിച്ചു ശബരിമലയും പരിസര പ്രദേശങ്ങളും പൊലീസ് നിയ ന്ത്രണത്തിൽ

ഇലവുങ്കൽ നിലക്കൽ പമ്പ സന്നി ധാനം എന്നിവിടങ്ങളിൽ നിരോധനാജ്ഞ തുടരുന്നു മറ്റ നാൾ അർധരാത്രി വരെയാണ് നിരോധനാജ്ഞ ഏർപ്പെ ടുത്തിയിരിക്കുന്നത്

നിലക്കലിലേക്ക് പ്രധാന വഴികളിൽ ബാരി ക്കേഡ് ഉയർത്തി പരിശോധനയ്ക്ക് ശേഷമാണ് വാഹ നങ്ങൾ കടത്തി വിടുന്നത് സ്ഥകാര്യ വാഹനങ്ങൾക്ക് നില ക്കൽ വരെ മാത്രമായിരിക്കും പ്രവേശനം കാൽനട യാത്ര ക്കാരായ അയ്യപ്പ ഭക്തൻമാർ ഒഴികെ തീർഥാടകർക്ക് കെ എസ്

ടി സി ടിക്കറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട് ശബരിമലയിൽ മാധ്യമങ്ങൾക്ക് വിലക്ക് ഏർപ്പെടു ത്തിയിട്ടില്ലെന്ന് സംസ്ഥാന പൊലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ പറഞ്ഞു സുരക്ഷാ ക്രമീകരണം പൂർത്തിയായാൽ മാധ്യമങ്ങളെ പ്രവേശിപ്പിക്കാൻ അനു വദിക്കും ഭക്തരുടേയും മാധ്യമ പ്രവർത്തകരുടേയും താല്പര്യം കണക്കിലെടുത്താണ് തൽക്കാലം നിയന്ത്രണം ഏർപ്പെടുത്തിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി

ടി രമേശ് മുന്നറിയിപ്പ് നൽകി ഗവൺമെന്റിന്റെ ഇംഗിതം ശബരിമലയിൽ നടപ്പാക്കാൻ അനുവദിക്കില്ലെന്നും നിഗൂഢ ലക്ഷ്യത്തോടെയാണ് ശബരിമലയിൽ മാധ്യമങ്ങൾക്ക് പിലക്കേർപ്പെടുത്തിയി രിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമലയിലെ കാര്യങ്ങൾ പുറം ലോകം അറിയാതിരിക്കാനാണ് ഗവൺമെന്റ് നടപടി കാര്യങ്ങൾ കൈവിട്ടു പോയാൽ ഉത്തരവാദി ഗവൺമെന്റും മുഖ്യമന്ത്രിയും മാത്രമായി രിക്കുമെന്നും എം ടി രമേശ് വൃക്തമാക്കി ചിത്തിര ആട്ട വിശേഷത്തിന് നട തുറക്കുന്ന നാളെ ശബരിമലയിൽ വനിതാ മാധ്യമ പ്രവർത്ത കരെ റിപ്പോർട്ടിംഗിന് അയക്കരുതെന്ന് ശബരിമല കർമ്മസ മിതി മാധ്യമ സ്ഥാപനങ്ങളോട് അഭ്യർത്ഥിച്ചു തുലാമാസ പൂജക്കാലത്ത് റിപ്പോർട്ടിംഗിന് എത്തിയ വനിതാ മാധ്യമ പ്രവർത്തകർക്കും അവരുടെ വാഹനങ്ങൾക്കും നേരെ ആക്രമണം റിപ്പോർട്ട് ചെയ്തിരുന്നു നിശ്ചിത പ്രായപ രിധി കൈവരിക്കാത്ത വനിതാ മാധ്യമപ്രവർത്തകരെ ശബരിമലയിലെ റിപ്പോർട്ടിംഗിന് അയക്കുന്നത് ആചാ രങ്ങൾക്ക് വിരുദ്ധമാണെന്ന് കർമ്മസമിതി മാധ്യമ സ്ഥാപ നങ്ങൾക്കയച്ച കത്തുകളിൽ അറിയിച്ചു

രഹസ്യ അജണ്ട നടപ്പാക്കുന്നതിനുള്ള ഇടമല്ല ശബ രിമലയെന്നും അദ്ദേഹം കോട്ടയത്ത് പറഞ്ഞു അടിയ ന്തരാവസ്ഥക്കാലത്തും മാധൃമങ്ങളെ വിലക്കിയത് ശരി യായ നടപടി ആയിരുന്നില്ലു

പൊലീസ് വലയത്തിൽ ശബരിമല ദർശനം നട ത്തേണ്ടി വരുന്നത് ദുഃഖകരമാണെന്ന് പന്തളം കൊട്ടാരം പ്രതിനിധികൾ പറഞ്ഞു പൊലീസ് സാന്നിധ്യം തീർത്ഥാ ടനത്തെ ബാധിക്കും നാളെ വൈകിട്ട് കൊട്ടാരത്തിൽ പ്രാർത്ഥനായജ്ഞം നടത്തുമെന്ന് അവർ അറിയിച്ചു യുവ തികൾ സന്നിധാനത്ത് പ്രവേശിച്ചാൽ ക്ഷേത്ര നടയട ക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് തന്ത്രിയാണെന്നും കൊട്ടാരം പ്രതിനിധികൾ പറഞ്ഞു നിലയ്ക്കലിൽ ഏർപ്പെടുത്തിയ മാധ്യമ വിലക്ക് പിൻവ ലിച്ചതായി പത്തനംതിട്ട ജില്ലാ കലക്ടർ പി

ദർശനം സുഗമമാക്കാനാണ് നിരോധനാജ്ഞ പുറപ്പെടുവിച്ചത് ശബരിമലയിൽ ഭക്തർക്കാവശ്യമായ എല്ലാ അടിസ്ഥാന സൌകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടു ണ്ടെന്നും കലക്ടർ പറഞ്ഞു ശബരിമലയിൽ യുവതികൾ പ്രവേശിക്കുന്നത് തടയു മെന്ന് യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് കെ

ആചാരലംഘനത്തിന് ഗവൺമെന്റ് നടത്തുന്ന ശ്രമം അനുവദിക്കില്ലെന്നും ഇത് സംബന്ധി ച്ച് കോഴിക്കോട്ട് ഇന്ന് ചേരുന്ന നേതൃയോഗം തീരുമാന മെടുക്കുമെന്നും പ്രകാശ് ബാബു പറഞ്ഞു ശബരിമല ദർശനത്തിന് അനുവാദം ചോദിച്ച് യുവ തികളാരും സമീപിച്ചിട്ടില്ലെന്ന് പത്തനംതിട്ട ജില്ലാ പൊലീസ് സൂപ്രണ്ട് ടി

വാഹന പരിശോധനയ്ക്കുശേഷം മാത്രമേ ഭക്തരെ കടത്തിവി ടൂ കുഴപ്പക്കാരെ കണ്ടാൽ കസ്റ്റഡിയിലെടുക്കുമെന്നും വടശ്ശേരിക്കര മുതൽ സന്നിധാനം വരെ സുരക്ഷാ നട പടികൾ ശക്തിമാക്കിയിട്ടുണ്ടെന്നും പൊലീസ് സൂപ്രണ്ട് അറിയിച്ചു

പൊലീസ് വലയത്തിൽ ശബരിമലയിലെത്താൻ ശ്രമിച്ച സ്ത്രീകൾ യഥാർത്ഥ വിശ്വാസികളായിരുന്നോ എന്ന കാര്യം സമൂഹമാണ് പരിശോധിക്കേണ്ടത്

ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ ഗവൺമെന്റ് പരാ ജയമാണെന്നും മുല്ലപ്പള്ളി പറഞ്ഞു

എമ്മും ആർ

എസ്സും ശബരിമലയിലേക്ക് വിടുകയാണ് ശബരിമല വിഷയ ത്തിൽ സി

ഐ നിശ്ശബ്ദത വെടിയണമെന്നും മുല്ല പ്പള്ളി ആവശ്യപ്പെട്ടു

സി സി വർക്കിംഗ് പ്രസിഡന്റ് കെ

രാവിലെ എയർ ഇന്ത്യാ എക്സ്പ്രസ് കമ്പനി യുടെ വിമാനം പരീക്ഷണ പറക്കൽ നടത്തി

ഇൻസ്ട്രുമെന്റ് ലാന്റിംഗ് സംവിധാനത്തിന്റെ കാലിബ്രേഷന്റെ ഭാഗമാ യാണ് പരീക്ഷണ പറക്കൽ നടത്തിയത് ജമ്മു ശ്രീനഗർ ദേശീയപാതയിൽ കനത്ത മൂടൽ മഞ്ഞിനെത്തുടർന്ന് ജവഹർ ടണലിൽ കുടുങ്ങിയ മുന്നൂ റോളം യാത്രക്കാരെ രക്ഷപ്പെടുത്തിയതായി പൊലീസ് അറിയിച്ചു രക്ഷപ്പെടുത്തിയവരിൽ സുരക്ഷാ ജീവന ക്കാരും ഉൾപ്പെടും

വൈകിട്ട് ഏഴിനാണ് മത്സരം

ധോണി ഇല്ലാതെയാണ് ഇന്ത്യൻ ടീം വെസ്റ്റിൻഡീസിനെ നേരിടുന്നത്

ഋഷഭ് പന്താണ് ധോണിക്ക് പകരം വിക്കറ്റ് കീപ്പർ

എൽ ഫുട്ബോളിൽ ഇന്ന് ഡൽഹി ഡൈനാമോസ് ജംഷഡ്പൂർ എഫ് സിയെ നേരിടും വൈകിട്ട് ഏഴരയ്ക്ക് ഡൽഹി ജവ്ഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് ഗോകുലം കേരള എഫ് സി ചെന്നൈ സിറ്റി എഫ്

കോഴിക്കോട്ട് പൊലീസ് കസ്റ്റഡിയിലെടുത്ത യുവാവ് മരിക്കാനിടയായ സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു

രാവിലെ മന്ത്രി കെ

ശൈലജ ഉദ്ഘാട്ടനം ചെയ്യും സെമി നാർ ബോധവൽക്കരണ ക്ലാസ് എന്നിവ ഇതിന്റെ ഭാഗ മായി നടക്കും സംസ്ഥാനത്ത് ഇന്ധനവില വീണ്ടും കുറഞ്ഞു

അഞ്ച് മീറ്റർ വീതിയുള്ളതും വലിയ ആഴ ത്തിലുള്ളതുമായ ഗർത്തമാണ് കണ്ടെത്തിയത് ഗർത്തം അടയ്ക്കുന്നതിനായി ശ്രമം തുടരുന്നു